ന്യൂസിലന്റിനെ നേരിടും

രവീന്ദ്രനാഥ് പറഞ്ഞു കോഴിക്കോട് വിവിധ സ്കൂളുകളിൽ ഉദ്ഘാടന ചടങ്ങുകളിൽ സംസാരിക്കകുയായിരുന്നു മന്ത്രി

ഏഴ് കോടിയോളം രൂപ എയ്ഡഡ് സ്കൂളുകളിലെ കെട്ടിട നിർമാണത്തിന് ഇതുവരെ നല്കി കഴിഞ്ഞു കൂടുതൽ അപേക്ഷകൾ പരിഗണിച്ച് വരികയണെന്നും മന്ത്രി പറഞ്ഞു

കേരളാ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വ മ്യോഗ്രം പത്തനംതിട്ടയിൽ ഉത്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം